കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്

എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചു മോദിയുമായി നടത്തിയ ടെലഫോൺ സംഭാഷണത്തിലാണ് ഇന്ത്യയുൾപ്പെടെ ചില പ്രധാന രാജ്യങ്ങളെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതായി ട്രംപ് അറിയിച്ചത്

ട്രംപിന്റെ തീരുമാനം ക്രിയാത്മകവും ദീർഘവീക്ഷണത്തോടെയുമാണെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു

നേരത്തെ കോവിഡ് പരിശോധന നടത്തിയിരുന്നു

നെടുമ്പാശ്ശേരി ഇറങ്ങിയ ഇവരെ തൃശൂരിലെ ആശുപത്രിയിൽ നിന്നാണ് ഇവിടേക്ക് മാറ്റിയത്

തിരുവനന്തപുരത്ത് ഒരാൾ മരിച്ചു

ആലപ്പുഴ ജില്ലയിൽ പത്തും കാസർകോട് ഒമ്പതും കൊല്ലത്ത് എട്ടും തിരുവനന്തപുരത്ത് ഏഴും കോട്ടയം തൃശൂർ വയനാട് ജില്ലകളിൽ ആറു പേർക്കു വീതവും രോഗം സ്ഥിരീകരിച്ചു പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ അഞ്ചു പേർക്ക് വീതവും എറണാകുളത്ത് മൂന്നു പേർക്കും പത്തനംതിട്ടയിൽ ഒരാൾക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്

രേര സംസ്ഥാനത്ത് ഇന്നലെ ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എം സുരേഷ്ബാബു

കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ കാസർകോട് ജില്ല പ്രതിനിധി പി

ബത്തേരി പൂളവയൽ പ്രദേശത്ത് താമസിക്കുന്ന മൂന്ന് ബംഗാളി സ്വദേശികൾക്കും ഒരു ഒഡീഷ സ്വദേശിക്കും ആണ് രോഗം സ്ഥിരീകരിച്ചത് രുമ കോട്ടയം ജില്ലയിൽ വിദേശത്തു നിന്നെത്തിയ ആറു പേർക്കാണ് പുതുതായി കോവി ഡ് സ്ഥിരീകരിച്ചത്

രുമ തൃശൂർ ജില്ലയിൽ അബുദാബിയിൽ നിന്നും വന്ന ഗുരുവായൂർ സ്വദേശി ദോഹയിൽ നിന്നും വന്ന അന്നമനട സ്വദേശി ചെന്നെയിൽ നിന്നും വന്ന രണ്ടു അണ്ടത്തോട് സ്വദേശികൾ ബാംഗ്ലൂരിൽ നിന്നും വന്ന കുന്നംകുളം സ്വദേശി രാജസ്ഥാനിൽ നിന്നും വന്ന പൂത്തോൾ സ്വദേശി എന്നിവർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

രുമ കോഴിക്കോട് ജില്ലയിൽ ചെന്നൈയിൽ നിന്നെത്തിയ രണ്ട് കുറ്റിയാടി സ്വദേശികൾക്കും ഒരു കൂരാച്ചുണ്ട് സ്വദേശിക്കും മംഗലുരുവിൽ നിന്നും വന്ന ഒരു കുറ്റിയാടി സ്വദേശിക്കും അബുദാബിയിൽ നിന്നെത്തിയ നരിപ്പറ്റ സ്വദേശിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

എല്ലാവരും പ്രവാസികളാണ് രുമ കൊല്ലം ജില്ലയിൽ തുടർച്ചയായി കോവിഡ് റിപോർട്ടു ചെയ്യുന്നതിനിടയിൽ രണ്ടുപേർ കൂടി രോഗം ഭേദമായി ആശുപത്രി വിട്ടു

രുര അറബിക്കടലിൽ രൂപം കൊണ്ട നിസർഗ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി മാറി ഇന്ന് ഉച്ചകഴിഞ്ഞ തീരം കടക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു

നിസർഗ ചുഴലിക്കാറ്റ് സംബന്ധിച്ച സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി സാധ്യമായ എല്ലാ മുൻകരുതലുകളും സുരക്ഷാ നടപടികളും സ്വീകരിക്കാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ചുഴലിക്കാറ്റിനെ കുറിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി ദാമൻ ദിയു ദാദ്ര നഗർഹവേലി അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കെ

സാധ്യമായ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ അറിയിച്ചു രുദ കാലവർഷം ശക്തമായതിന്റെ ഭാഗമായി കേരളത്തിൽ വ്യാപകമായി മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ മഞ്ഞ അലർട്ടായിരിക്കും

രുഭ സംവിധായകൻ എസ് എൽ പുരം ആനന്ദ് അന്തരിച്ചു

ആലില കുരുവികൾ ആറ്റിനക്കരെ എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ആനന്ദ് ഉദയ നവോദയ എന്നീ സിനിമാ നിർമ്മാണ കമ്പനികളുടെ നിരവധി സിനിമകളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിരുന്നു പന്ത്രണ്ടോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്

എൽ പുരത്തെ വീട്ടുവളപ്പിൽ രദ് കിസാൻ സഭ ദേശീയ കൌൺസിൽ അംഗവും സി

നേതാവുമായ എ

സംസ്കാരം ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുഴപ്പിലങ്ങാട് പൊതു ശ്മശാനത്തിൽ നടക്കും ദേഴ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ മുതൽ നിബന്ധനങ്ങളോടെ വിവാഹങ്ങൾ നടത്താൻ ദേവസ്വം ബോർഡ് അനുമതി നൽകി

വിവാഹം നടത്തുന്നതിന് അഡ്വാൻസ് ബുക്കിങ് ഉടനെ ആരംഭിക്കും